സാധ്യമായ എല്ലാ ഉപാധികളുപയോഗിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

രാസവസ്തുക്കളുടെയും ഇറ്ക്കുമതി തീരുവ ആറുമാസത്തേക്ക് റദ്ദാക്കി ്കേന്ദ്രസർക്കാർ

കോവിഡ് സ്ഥിരീകരിച്ചു കേരളത്തിലും കോവിഡ് വ്യാപനം രൂക്ഷം

ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കോവിഡ് രണ്ടാം തരംഗത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യൂക്ഷതയിൽ വിർച്ചലായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി ആമിന നജുമ

താഴെത്തട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതിൽ ശ്രദ്ധ വെക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോഴത്തെ കോവിഡ് പ്രതിസന്ധി നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം മഹാമാരി സംഭവിക്കുന്നതാണെന്നും ലോകത്തിന് തന്നെ വെല്ലുവിളിയാണെന്നും മന്ത്രിസഭായോഗം വിലയിരുത്തി

ഇൻഷുറൻ ക്ലൈമുകൾ വേഗത്തിൽ തീർക്കാനുള്ള നടപടികൾ എടുക്കാമെന്നും സാധനങ്ങളുടെ തടസ്സമില്ലാത്ത നിക്കം ഉറപ്പു വരുത്താൻ സമഗ്രപദ്ധതി ആസൂത്രണം ചെയ്യണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു

പൊതുജനാരോഗൃമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും ചരക്കു നീക്കം സുഗമമാക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച ചെയ്തു

അതേസമയം കേരളത്തിലും ജമ്മുകശ്മീരിലുമടക്കം വാക്സിൻ ദൌർലഭ്യത്തെ തുടർന്ന് മൂന്നാംഘട്ട വാക്സിനേഷൻ ഇന്ന് നടത്താനാകാത്ത സ്ഥിതിയാണ്

തിങ്കളാഴ്ച രാവിലെ ഏഴു മണിവരെ അടച്ചിടൽ തുടരും

രാജ്യത്ത് റംഡെസിവിർ ക്ഷാമത്തെ തുർന്നാണ് മരുന്ന് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര രാസ വസ്തു വള മന്ത്രാലയം വ്യക്തമാക്കി

ഏറ്റവും കൂടുതൽ പേർക്ക് രോഗബാധിതരുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്

സംസ്ഥാന കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം അവശ്യ സേവനങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടും

എയർപോർട്ട് റെയിൽവെ യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവില്ല ഓക്സിജൻ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ട വസ്തുക്കൾ സാനിറ്റേഷൻ വസ്തുക്കൾ എന്നിവയുടെ നീക്കം തടസ്സമില്ലാതെ അനുവദിക്കും

നിരത്തുകളിലെ വാഹനപരിശോധന ഇന്ന് വൈകുന്നേരം ആരംഭിക്കും സംസ്ഥാന അതിർത്തികളിൽ പ്രത്യേക പരിശോധനയുണ്ടാകും

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തൊഴിലാളികൾക്ക് മെയ് ദിനാശാംസകൾ നേർന്നു കോവിഡ് പശ്ചാത്തലത്തിൽ മെയ് ദിന റാലികൾ ഒഴിവാക്കിയിട്ടുണ്ട്

ഉഭയകക്ഷി ബന്ധത്തിലെ നിലവിലെ സാഹചര്യം യോഗം വിലയിരുത്തി

സമീപത്തെ ആശുപത്രിക്കും വീടുകൾക്കും നാശനഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്

രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്നാണ് ഇത്

ഇന്ന് രാ്ത്തി ഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ്ട് ച്ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും